സജീവം തെരഞ്ഞെടുപ്പ് കമ്മിഷൻ ഇന്ന് പോലീസ് മേധാവിയുമായി ചർച്ചു നൂട്ടത്തും

വിനോദ സഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതികൾക്ക് തുടക്കം ലൈഫ് മിഷൻ ക്രമ്ക്കേടുമായി ബന്ധപ്പെട്ട് ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു

തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും രോഗവ്യാപനം കുറയുന്നു ഐ

റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരം

അന്തിമ വോട്ടർപട്ടികയ്ക്ക് രൂപം നൽകാനുള്ള പ്രവർത്തനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പൊലീസ് മേധാവിയുമായി സുരക്ഷാകാരൃങ്ങൾ സംബന്ധിച്ച് കമീഷൻ ചർച്ച നടത്തും

സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വിനോദ സഞ്ചാര കേന്ദ്രത്തിൽ പ്രകൃതി ഭംഗി ട്രെയിൻ യാത്രയിലൂടെ ആസ്വദിക്കാനുള്ള സംരംഭം ഒരുങ്ങുന്നത്

പത്തുകോടിയോളം രൂപ ചെലവിട്ട ഈ സംവിധാനം രാജ്യത്തു തന്നെ ആദ്യമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഫെയ്സ്ബുക്കിലൂടെ അറിയിച്ചു

ജനതയുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ സ്പോർട്സിനോളം ഫലപ്രദമായ മറ്റൊന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ലൈഫ് പദ്ധ്യതി ലഭിക്കാൻ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ സ്വപ്ന് പൂഴി വിതരണം ചെയ്ത കമ്മീഷനെക്കുറിച്ചും ആറ് ഐ ഫോണുകളെ സംബന്ധിച്ചും അന്വേഷിക്കുന്നതിനാണ് ചോദ്യം ചെയ്യൽ

മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ബിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കും

കള്ളപ്പണക്കേസിൽ സ്വപ്ന സരിത്ത് സന്ദീപ് എന്നിവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇ

ശിവശങ്കറിനെ കൂടാതെ സ്വപ്നയടക്ക മുള്ള പ്രതികളും വിവിധ ഇടപാടുകളിൽ പങ്കാളികളായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ചോദ്യം ചെയ്യാൻ അനുമതി തേടിയത് ശിവശങ്കർ മുൻകൈയെടുത്ത മറ്റു പദ്ധതികളിലെ വിശദാംശം തേടി ഇ ഡി ചീഫ് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു നടി ആക്രമണ കേസ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ചു കേസിന്റെ വിചാരണ വെള്ളിയാഴ്ച വരെ നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവായി വിചാരണ കോടതി മാറ്റണമെന്ന നടിയുടേയും പ്രോസിക്യൂഷന്റെയും ആവശ്യം കണക്കിലെടുത്താണ് ഹൈക്കോടതി നടപടി ഹർജിയിൽ വിശദമായ വാദം ആവശ്യമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി നടിയുടെയും സാക്ഷികളുടെയും മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നതടക്കമുള്ള വീഴ്ചകൾ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്

സി വൈദ്യുതി ലൈൻ നിർമ്മാണം ഈ മ്യാൻഫ പൂർത്തിയാകും

ഭാവിയിൽ വർദ്ധിച്ച വൈദ്യുതി ആവശ്യം നേരിടുന്നതോടൊപ്പം പ്രസരണ നഷ്ടം ഗണ്യമായി കുറയ്ക്കാനും ഇതുവഴി സാധിക്കും

കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത്

അതിനൂതന സാങ്കേതിക വിദ്യയായ വോൾട്ടേജ് സോഴ്സ് കൺവർട്ടർ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യപ്രസരണ ശൃംഖലയാണിത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇ ഡി ബൾബ് വിതരണം ഈ മാസം ആരംഭിക്കും

ഡിയിലേക്ക് മാറുന്നതിലൂടെ വൈദ്യുതി ഉപഭോഗം താഴും

മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികൾ കുറയുന്നു

ഇളങ്കോ ഇൻട്രോ കോവിഡ് പ്രതിരോധത്തിനായി സർക്കാർ സംവിധാനങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിക്കുമ്പോഴും ജനങ്ങളുടെ സഹകരണമാണ് ഏറ്റവും നിർണ്ണായകമെന്ന് കൊല്ലം റൂറൽ എസ് പി ആർ

എം ഫണ്ട് ഉപയോഗിച്ച് സജ്ജമാക്കിയ തീവ്ര പരിചരണ വിഭാഗത്തിൽ കോവിഡ് സാഹചരൃത്തിൽ മൈത്ര ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ടെലി മെഡിസിൻ സേവനം ആരംഭിച്ചു ഇതുവഴി തീവ്ര പരിചരണ വിഭാഗത്തില്ല ്രോഗികൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ടെലി മെഡ്ടിസ്ട്രീനിലൂടെ നൂതന ചികിത്സ നൽകാൻ സാധിക്കും

എൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം

യാത്രക്കാർക്ക് അവരുടെ ഓഫീസിന് സമീപം ഇറങ്ങുകയും അവിടെ നിന്നും തിരിച്ചു കയറുകയും ചെയ്യാവുന്നതാണ് പണം മുൻകൂറായി അടച്ച് ബോണ്ട് ടിക്കറ്റുകൾ മുൻകൂട്ടി കൈപ്പറ്റാവുന്നതാണ്

ക്ഷേത്ര കലാശ്രീ അവാർഡിന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻ കുട്ടി മാരാരും ക്ഷേത്ര കലാ ഫെലോഷിപ്പിന് സ്ഥാമി കൃഷ്ണാനന്ദ ഭാരതിയും അർഹരായി

എച്ച് സുബ്രഹ്മണ്യൻ കണ്ണൂരിൽ മാധ്യമങ്ങൾ അറിയിച്ചു